ഇരു രാജ്യങ്ങളും തമ്മിലെ ബന്ധം ജനങ്ങ ളുടെ പുരോഗതി അടിസ്ഥാനമാക്കിയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി

പി രാമ കൃഷ്ണൻ

ഭൂട്ടാൻ തലസ്ഥാനമായ തിമ്പുവിൽ ഇരുനേതാ ക്കളും നടത്തിയ കൂടിക്കാഴ്ചയ്ക്കുശേഷം ഇന്ത്യയും ഭൂട്ടാനും തമ്മിൽ പത്ത് ധാരണാപത്രങ്ങളിൽ ഒപ്പുവെച്ചു ബഹിരാകാശ ഗവേഷണം വ്യോമയാനം ഐ ടി ഊർജ്ജം വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിലെ സഹകര ണത്തിനാണ് ധാരണകളിൽ ഒപ്പുവെച്ചത് ഭൂട്ടാൻ ഇന്ത്യയുടെ പ്രത്യേക സുഹൃത്താണെന്നും ഇരുരാജൃങ്ങളിലെയും ജന ങ്ങളുടെ പുരോഗതിയും സമ്പൽ സമൃദ്ധിയും സുരക്ഷയും അടിസ്ഥാനമാക്കിയാണ് രണ്ട് രാജ്യങ്ങളും തമ്മിലെ ബന്ധ മെന്നും നരേന്ദ്രമോദി പറഞ്ഞു

ഭൂട്ടാ നിൽ റുപെ കാർഡും മോദി പുറത്തിറക്കി

കശ്മീർ താഴ്വരയിലെ ഏതാനും പ്രദേശങ്ങളിൽ ലാൻഡ്ലൈൻ ഫോൺ സർവ്വീസുകൾ ഉൾപ്പെടെ വാർത്താ വിനിമയ ബന്ധം പുനഃസ്ഥാപിച്ചു ചില യിടങ്ങളിൽ ഇന്നലെ കടകൾ തുറന്നു

മലപ്പുറം കവളപ്പാറയിലും വയനാട് പുത്തുമലയിലും ദുര ന്തത്തിൽ കാണാതായവർക്കായി ഭൂഗർഭ റഡാർ ഉപയോഗിച്ച് ഇന്ന് തിരച്ചിൽ ആരംഭിക്കും

രണ്ടാമത്തെ മൃതദേഹം തിരിച്ചറിഞ്ഞിട്ടില്ല ഹൈദരബാദ് നാഷണൽ ജിയോ ഫിസിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ആറംഗ ശാസ്ത്രജ്ഞ സംഘം റഡാർ ഉൾപ്പെടെ സംവിധാനങ്ങളുമായി കവളപ്പാറ യിൽ എത്തിയിട്ടുണ്ട് രണ്ട് സെറ്റ് റഡാറുകൾ ഉപയോഗിച്ച് അവർ ഇന്ന് പരിശോധന തുടങ്ങും

പുത്തു മലയിൽ കാണാതായവരുടെ ബന്ധുക്കൾ നിർദ്ദേശിക്കുന്ന സ്ഥലങ്ങളിലാണ് തിരച്ചിൽ നടത്തുന്നത് മണ്ണിനടിയിൽപ്പെട്ടവരെ കണ്ടെത്താൻ സഹായിക്കുന്ന റഡാർ സംവിധാനം ഇന്ന് എത്തും

മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഇന്നലെ പുത്തുമല സന്ദർശിച്ച് പ്രവർത്തനങ്ങൾ നിരീക്ഷിച്ചു

ഏറ്റവും കൂടുതൽ പേർ മരിച്ചത് മലപ്പുറ ത്താണ്

മഴയുടെ ശക്തി കുറഞ്ഞ് താഴ്ന്നു പ്രദേശങ്ങളിൽ വെള്ളം ഇറങ്ങിത്തുടങ്ങിയതോടെ കൂടുതൽ പേർ ദുരിതാശ്ചാസ ക്യാമ്പുകളിൽനിന്ന് വീടുകളിൽ തിരിച്ചെത്തി

ഇന്നും നാളെയും ചിലയിടങ്ങളിൽ മഴയ്ക്ക് സാധൃതയുണ്ട് ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ കനത്ത മഴ പെയ്യുമെന്നും കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി വയനാട്ടിൽ പ്രളയ ജലത്തിൽ അടിഞ്ഞുകൂടിയ മാലിനൃ ങ്ങൾ നീക്കം ചെയ്യാൻ ഇന്ന് ശുചീകരണ യജ്ഞം സംഘടി പ്പിക്കും രാവിലെ ആരംഭിക്കുന്ന ഒരു ദിവസത്തെ ശുചീക രണ യജ്ഞത്തിൽ ഒരു ലക്ഷത്തോളം പേർ പങ്കെടുക്കും

ഓരോ ഗ്രാമപഞ്ചായത്തിലും വാർഡുകൾ കേന്ദ്രീകരി ച്ചാണ് ശുചീകരണം പ്രളയ ബാധിതർക്ക് ഗവൺമെന്റ് നൽകുന്ന സഹായ വിതരണത്തിനായി തയ്യാറാക്കുന്ന പട്ടികയിൽ അനർഹർ കടന്നുകൂടരുതെന്നും അർഹരായ ഒരാളും വിട്ടുപോകുന്ന സാഹചര്യം ഉണ്ടാകരുതെന്നും മന്ത്രി ടി പി രാമകൃഷ്ണൻ പറഞ്ഞു പ്രളയാനന്തര പുനർ നിർമാണവുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് ജില്ലാതല ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി ദുരിതാശ്വാസ ക്യാമ്പിൽ രജിസ്റ്റർ ചെയ്തു എന്നതല്ല പ്രളയബാധിത സഹായത്തിന് അർഹതയ്ക്ക് മാനദണ്ഡം ക്യാമ്പിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിലും വീട്ടിൽ വെള്ളം കയറുകയോ വീട് പൂർണമായോ ഭാഗികമായോ തകരുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ധനസഹായം ലഭിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി അർഹരായ എല്ലാവർക്കും ഗവൺമെന്റ് സഹായം എത്തിക്കുന്നതിനും അനർഹരായവർ സഹായം തട്ടിയെടുക്കുന്നത് തടയുന്നതിനും ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും ജാഗ്രത പുലർത്തണമെന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നിർദ്ദേശിച്ചു ക്യാമ്പുകളുടെ നല്ല രീതിയിലുള്ള തുടർ പ്രവർത്തനത്തിന് വകുപ്പുകളുടെയും ജനങ്ങളുടെയും കൂട്ടായ്മ ഉണ്ടാകണമെന്ന് അദ്ദേഹം പറഞ്ഞു വയനാട് ജില്ലയിലെ പ്രളയ ദുരന്തം സംബന്ധിച്ച പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യാൻ കളക്ടറേറ്റിൽ ചേർന്ന യോഗത്തിൽ സംസാരിക്കു കയായിരുന്നു അദ്ദേഹം

മരണപ്പെട്ടവരുടെ ആശ്രിതർക്ക് ധനസഹായം സംസ്ഥാന ദുരന്ത നിവാരണ പ്രതികരണ നിധിയിൽ നിന്ന് ഉടൻ വിതരണം ചെയ്യുന്നതിന് നടപടി എടുക്കുമെന്ന് ജില്ലാ കലക്ടർ വ്യക്തമാക്കി കണ്ണൂർ ജില്ലയിൽ രണ്ട് ദുരിതാശ്വാസ ക്യാമ്പുകളാണ് ശേഷിക്കുന്നത്

മുരളീധരൻ എം

വടകരയിലെ കലാകാരന്മാരുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പ്രളയദുരിതാശ്വാസ ഐക്യദാർഢ്യ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം പ്രകൃതിയോട് ചേർന്ന് ജീവിക്കുക എന്ന ഗാന്ധിയൻ ആദർശ ത്തിൽനിന്ന് പ്രചോദനമുൾക്കൊണ്ടാണ് കേന്ദ്ര ഗവൺമെന്റ് ജൽ ശക്തി മന്ത്രാലയത്തിന് രൂപം നൽകിയതെന്ന് കേന്ദ്രമന്ത്രി വി

അന്താരാഷ്ട്ര സൌര സഖ്യമടക്കം നിരവധി ചുവടുവെപ്പുകളുമായി കേന്ദ്ര ഗവൺമെന്റ് മുന്നോട്ട് പോകുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു

ഗുസ്തിതാരം ബജ്രംഗ് പുനിയക്കും പാര അത്ലറ്റിക്സിൽ ആദ്യ മെഡൽ ജേതാവ് ദീപ മാലിക്കിനും രാജ്യത്തെ പര മോന്നത കായിക പുരസ്കാരമായ രാജീവ് ഗാന്ധി ഖേൽ രത്നയ്ക്ക് സെലക്ഷൻ കമ്മിറ്റി ശുപാർശ ചെയ്തു

മലയാളികളായ മുൻ ഹോക്കി താരം മാനുവൽ ഫെഡറി ക്കിനെ ധ്യാൻചന്ദ് പുരസ്കാരത്തിനും ബാഡ്മിന്റൺ പരി ശീലകൻ യു വിമൽകുമാറിനെ ദ്രോണാചാര്യ അവാർഡിനും ശുപാർശ ചെയ്തിട്ടുണ്ട് കൊൽക്കത്തയിൽ നടക്കുന്ന ഡ്യൂറന്റ് കപ്പിൽ സെമി ഉറപ്പാക്കിയ ഗോകുലം കേരള എഫ് സിഅവസാന ഗ്രൂപ്പ് മത്സരത്തിന് ഇന്നിറങ്ങും ട്രാവുവാണ് എതിരാളികൾ ഗോകുലത്തിന് രണ്ട് ജയവുമായി ആര് പോയിന്റാണുള്ള ത് കോഴിക്കോട്ട് ജില്ലയിലെ മുഴുവൻ പുഴകളിലെയും മണൽ ഓഡിറ്റിങ് നടത്തുന്നതിന് മന്ത്രി ടി പി രാമകൃഷ്ണന്റെ സാന്നിധ്യത്തിൽ നടന്ന ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി യോഗം തീരുമാനിച്ചു പുഴകളിലെയും തോടുകളിലെയും മുഴുവൻ കയ്യേറ്റങ്ങളും കണ്ടെത്തി ഒഴിപ്പിക്കുന്നതിന് നടപടി സ്വീകരിക്കാൻ തഹസിൽദാർമാർ ജലസേചന വകുപ്പ് എക് സിക്യൂട്ടീവ് എഞ്ചിനീയർമാർ എന്നിവരെ ചുമതലപ്പെടുത്തി എല്ലാ കാറികളും ജിയോളജിസ്റ്റ് പരിശോധിച്ച് മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കണമെന്നും നിർദ്ദേശം നൽകി ദുരിതബാധിത പ്രദേശങ്ങളുടെ പുനർ നിർമ്മാണത്തിന് സമഗ്ര പദ്ധതികൾ ആസൂത്രണം ചെയ്യണമെന്ന് ഡീൻ കുര്യാക്കോസ് എം പി ആവശ്യപ്പെട്ടു പുനർ നിർമ്മാണ പദ്ധ തികൾ തയ്യാറാക്കി നടപ്പാക്കുന്നതിന് പഞ്ചായത്തുകൾക്ക് ചുമതല നൽകണമെന്നും ഇതിനാവശ്യമായ ഫണ്ട് പഞ്ചാ യത്തുകൾക്ക് അനുവദിച്ചാൽ ഫലപ്രദമായ പൃദ്ധതികൾ നട പ്പാക്കാനാകുമെന്നും അദ്ദേഹം ഇടുക്കിയിൽ പറഞ്ഞു കാലവർഷക്കെടുതിയിൽ കൃഷനാശം നേരിട്ടയിടങ്ങളിൽ നാശനഷ്ടങ്ങൾ വിലിയിരുത്തുന്നതിന് ഫാം ഇൻഫർമേ ഷൻ ബ്യൂറോ പരിശോധന നടത്തി തൃശൂരിൽ കോൾ പാട ശേഖരങ്ങളും കൊടകര മാള പുഴയ്ക്കൽ എന്നീ കാർഷിക മേഖലകളുമാണ് മീഡിയാ ലെയ്സൻ ഓഫീസറുടെ നേതൃ ത്വത്തിൽ സംഘം സന്ദർശിച്ചത് സംസ്ഥാനത്ത് കൃഷിനാശം വളരെ വേഗത്തിൽ വിലയി രുത്തുന്നതിനാണ് മന്ത്രി വി എസ് സുനിൽകുമാറിന്റെ നിർദ്ദേശ പ്രകാരം സംഘം രൂപീകരിച്ച് ഫാം ഇൻഫർമേ ഷൻ ബ്യൂറോ വിവിധ ജില്ലകളിൽ പരൃടനം നടത്തുന്നത്

ഷട്ടറു കൾ ഉയർത്തിയെങ്കിലും ആശങ്ക വേണ്ടെന്ന് ജില്ലാ കലക്ടർ എസ് ഷാനവാസ് അറിയിച്ചു മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട് കാറികളുടെ പ്രവർത്തനം നിർത്തിവച്ച സാഹചര്യത്തിൽ കാറി ഉത്പന്നങ്ങൾക്ക് അമിതവില ഈടാക്കരുതെന്ന് കൊല്ലം ജില്ലാ കലക്ടർ ബി അബ്ദുൽ നാസർ നിർദേശിച്ചു ഗവൺമെന്റ് നിശ്ചയിച്ച വിലയിൽ അധികം ഈടാക്കുന്ന ക്രഷർ യൂണിറ്റുകൾക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും കലക്ടർ അറിയിച്ചു കണ്ണൂർ ജില്ലയിൽ പ്രളയത്തെത്തുടർന്ന് കേടായ ഉപകരണങ്ങൾ അധ്യാപകരും വിദ്യാർഥികളുമടങ്ങുന്ന നൈപുണ്യകർമ്മസേന അറ്റകുറ്റപ്പണി നടത്തി ഉപയോഗ യോഗൃമാക്കി നൈപുണൃകർമ്മസേന വൃാവസായിക പരിശീലന വകുപ്പിന്റെയും ഹരിത കേരളം മിഷന്റെയും നേതൃത്വത്തിൽ ജില്ലയിലെ ഐ

ഐ വിദ്യാർത്ഥികളാണ് രംഗത്തിറങ്ങിയത്

സപ്തംബർ രണ്ടിന് നടത്താൻ നിശ്ചയിച്ച പരീക്ഷ സപ്തംബർ ആറിലേക്ക് മാറ്റിയതായി പൊതുവിദ്യാഭ്യാസ ഡയരക്ടർ തിരുവനന്തപുരത്ത് അറിയിച്ചു

തീവ്ര വാദി അക്രമം മുൻനിർത്തി കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗ ത്തിന്റെ നിർദ്ദേശത്തെത്തുടർന്നായിരുന്നു പരിശോധന കോഴിക്കോട് നഗരത്തിലെ വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും വില്പനയ്ക്കായ് ക്കാണ്ടുവന്ന കഞ്ചാവുമായി നടുവട്ടം സ്വദേശി ശ്രീധർശിനെ നല്ലളം പൊലീസും ജില്ലാ ആന്റി നാർക്കോട്ടിക്ക് സ്പെഷ്യൽ ആക്ഷൻ ഫോഴ്സും ചേർന്ന് അറസ്റ്റ് ചെയ്തു